സാങ്കേതിക രംഗം അങ്ങേയറ്റം പിന്തുണച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒന്നേകാൽ കോടിയോളം രൂപയുടെ സ്വർണം പിടികൂടി കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ കൊച്ചി പതിപ്പിന് ഇന്ന് തിരി തെളിയും സംസ്ഥാനത്ത് ചില തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്

എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ ഒഡീഷയെ നേരിടും

കോവിഡ് പ്രതിസന്ധി മറികടക്കാനും ലോകത്തിനു മുന്നിൽ കോവിഡ് വാക്സിൻ യജ്ഞത്തിൽ മുഖ്യ പങ്കാളിയാകാനും രാജ്യത്തെ വിവര സാങ്കേതിക രംഗം അങ്ങേയറ്റം പിന്തുണച്ചെന്ന് ശ്രീ

ഭാവിയെ മെച്ചപ്പെട്ട നിലയിലേയ്ക്ക് രൂപപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിപാടിയുടെ പ്രമേയം വിവര സാങ്കേതിക മേഖലയിലെ പ്രമുഖർ പ്രധാനമന്ത്രിയുമായി വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു

സമ്മേളനം മറ്റെന്നാൾ സമാപിക്കും തമിഴ്നാട്ടിൽ ഇന്ധന വാതക മേഖലയിലെ സുപ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി വൈകിട്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കും

ആലപ്പുഴയിൽ പത്തും ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ എട്ടുവീതവും കോട്ടയത്ത് ഏഴും കൊല്ലത്തും തൃശൂരും അഞ്ചുവീതവും തിരുവന്തപുരത്ത് നാലും പത്തനംതിട്ട കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മൂന്നുവീതവും കുടുംബാരോഗൃ കേന്ദ്രങ്ങളാണ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്

ഉച്ചക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

വൈകിട്ട് തൈക്കാട് പോലീസ് ട്രെയിനിംഗ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും

ആർ ടി

എം

നെടുമങ്ങാട് തിരുവന്തപുരം താലൂക്കുകൾക്കായാണ് അദാലത്ത് നടക്കുന്നത്

കൂടുതൽ നിയമനങ്ങൾ നടന്നത് യു ഡി

ക്സ്മര്ം അമർച്ച ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുറ്റ പ്രെയിപക്ഷ നേതാവ് തിരുവല്ലയിൽ ഐശ്വര്യ കേരള യാത്രയിൽ പുർഞ്ഞു

മുന്നോട്ടുവെച്ച ആവശൃങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരം തുടരാനാണ് ഉദ്യോഗാർഥികളുടെ നീക്കം റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടുക അനധികൃത സ്ഥിരപ്പെടുത്തലുകൾ തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ രാത്രി വൈകിയും പ്രതിഷേധം ശക്തമായി തുടർന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും അനുകൂല നിലപാട് സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ സമരനടപടികൾ കൂടുതൽ കടുപ്പിക്കും എന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ

വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും വൈകിട്ട് അടിവാരത്ത് പ്രവേശിക്കുന്ന യാത്രക്ക് മുക്കം താമരശേരി ബാലുശേരി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽക്കൂർ

തിരുവല്ലയിൽ നിന്നാരംഭിച്ച് റാന്നി കോന്നി അടൂർ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കും വിവിധ ഘടക കക്ഷി നേതാക്കളും യു

എഫ് പ്രവർത്തകരും യാത്രയിൽ പങ്കെടുക്കും

മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും

സംവിധായകൻ കെ

ജോർജിന്റെ നേതൃത്വത്തിൽ പ്രമുഖ വ്യക്തികൾ ചേർന്നാണ് തിരിതെളിക്കുന്നത് ജാസ്മില സബാനിക് സംവിധാനം ചെയ്ത ബോസ്നിയൻ വംശഹത്യയുടെ പിന്നാമ്പുറങ്ങൾ ആവിഷ്ക്കരിക്കുന്ന കോ വാഡിസ് ഐഡ ആണ് ഉദ്ഘാടന ചിത്രം

കൊല്ലം ജില്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇൻ ഹൌസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

കൊല്ലം ആലപ്പുഴ കൊച്ചി പൊന്നാനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് അർദ്ധരാത്രി വരെ രണ്ടു മീറ്ററോളം തിരമാലകൾ ഉയരാൻ സാധൃതയുള്ളതായി അറിയിപ്പിൽ പറയുന്നു

എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇ്ന്ന് എഫ് സി ഗോവ ഒഡീഷയെ നേരിടും

ഇന്നലെ പനജിയിൽ നടന്ന് ്മത്സ്രത്തിൽ എതിരില്ലാത്ത നാലു ഗോളിന് ഹൈദരാബാദ് ക്ടിഫ്

ഹൈദരാബാദ് മൂന്നാമതെത്തി സെമി ഫൈനൽ സാധ്യത വർദ്ധിപ്പിച്ചു

പരവൂർ പുനലൂർ കരുനാഗപ്പള്ളി കൊട്ടാരക്കര നഗരസഭകളിൽ വരുംദിവസങ്ങളിൽ പ്രചാരണ പരിപാടി ആരംഭിക്കും

തുടർച്ചയായ പത്താം ദിവസമാണ് ഇന്ധനവില കൂടുന്നത്